കെ ശൈലജ

എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി കൊച്ചി മംഗലുരു പ്രകൃതിവാതക പൈപ്പ്ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും

എസ് യെദ്യൂരപ്പ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പങ്കെടുക്കും

വിശദാംശങ്ങളുമായി ജഷിതകുമാരി ദ്ദേ കൊച്ചിയിലെ എൽ

എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലൂടെയാണ് സംസ്ഥാനത്ത് പൈപ്പ്ലൈൻ കടന്നുപോകുന്നത് വീട്ടാവശ്യത്തിന് പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ പ്രകൃതി വാതക ഇന്ധനവും ഗതാഗത മേഖലക്ക് സി

പൈപ്പ്ലൈൻ കടന്നുപോകുന്ന ജില്ലകളിൽ വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രകൃതി വാതകം നൽകും സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചക്കും സാമ്പത്തിക വികസനത്തിനും വലിയ സാധ്യതയാണ് ചെലവ് കുറഞ്ഞ പ്രകൃതിവാതക ഇന്ധനം ലഭ്യമാകുന്നത് വഴി തുറന്നുകിട്ടുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ദ്ദേ ഊർജ്ജ ആത്മനിർഭരതക്ക് ഇന്ത്യയുടെ അന്വേഷണത്തിലെ നാഴികക്കല്പാണ് ഇന്ന് രാവിലെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന കൊച്ചി മംഗലുരു പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭാവിയിൽ പദ്ധതി ഒട്ടേറെ പേർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു ദേദ ഗെയിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ വീടുകളിലും വ്യാവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇന്ധനം എത്തിക്കുന്നതിന് നടപടി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു ഗെയിലിന്റെ കൂടാളിയിലെ സേഫ്റ്റി വാൾവ് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകം പൈപ്പുകൾ സ്ഥാപിച്ചായിരിക്കും വിതരണം ഔട്ട്ലെറ്റുകളും സ്ഥാപിക്കും ദേദ ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസ് സംസ്ഥാനത്ത് ആറുപേർക്ക് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ

കെയിൽ നിന്ന് എത്തിയ കോഴിക്കോട്ടെയും ആലപ്പുഴയിലെയും ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് വീതവും കോട്ടയത്തും കണ്ണൂരിലും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത് ഇവരെല്ലാം ചികിത്സയിലാണെന്നും ഇവരുമായി സമ്പർക്കമുള്ളവർ നിരീക്ഷണത്തിലാണെന്നും മന്ത്രി പറഞ്ഞു

ജനിതകമാറ്റം വന്ന വൈറസ് ശരീരത്തിൽ പെട്ടെന്ന് പെരുകുകയും മറ്റുള്ളവരിലേക്ക് വേഗം പകരുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഈ സാഹചര്യത്തിൽ പ്രായമായവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും റിവേഴ്സ് ക്വാറന്റൈൻ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു വിദേശത്തുനിന്ന് വരുന്നവരും അവരുമായി സമ്പർക്കത്തിൽ വന്നവരും ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു ദ്ദേ ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ കൃത്യമായ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

കെയിൽ നിന്നു വന്നവരെ കൃത്യമായി നിരീക്ഷണത്തിലാക്കിയിരുന്നുവെന്നും ഭയക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു

എല്ലാ ജില്ലകളിലും അഞ്ഞൂറിൽ താഴെയാണ് ഇന്നലെ രോഗബാധിതർ

ദ്ദേ ആലപ്പുഴയിലും കോട്ടയത്തും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ പറഞ്ഞു പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്കും മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധവും ശുചിത്വവും കർശനമായി പാലിക്കണം മൃഗസംരക്ഷണ ആരോഗ്യ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് ടാസ്ക് ഫോഴ്സ് ടീമിന്റെ ജില്ലാതല യോഗത്തിൽ കലക്ടർ നിർദേശം നൽകി ദേദ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളിൽ താറാവ് കോഴി കാട തുടങ്ങിയ പക്ഷികളുടെ ഇറച്ചി മുട്ട കാഷ്ഠം എന്നിവയുടെ ഉപയോഗവും വിപണനവും ജില്ലാ കലക്ടർ നിരോധിച്ചു ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി ദേദ കോളജ് വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായി നൽകേണ്ട തിയറി പ്രാക്ടിക്കൽ ക്സാസുകൾ ചുരുങ്ങിയ സമയത്തിനകം പൂർത്തിയാക്കാൻ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി ഡോക്ടർ കെ

സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളജ് പ്രിൻസിപ്പൽമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ കുട്ടികളെ ഒരുമിച്ച് ഇരുത്തുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലോ ഇടവിട്ട ദിവസങ്ങളിലോ കോളജുകളിലെ സൌകര്യം കണക്കിലെടുത്ത് ക്സാസുകൾ ക്രമീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി അധ്യാപകർ ഒരുദിവസം ആറുമണിക്കൂറിൽ കൂടുതൽ ക്സാസെടുക്കണമെന്ന് നിർബന്ധിക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു അധ്യാപകർ സ്വമേധയാ കൂടുതൽ സമയം ക്ലാസുകൾ കൈകാര്യം ചെയ്ത് ഈ പ്രതിസന്ധി ഘട്ടം അതിജീവിക്കാൻ മുന്നോട്ടുവരുന്നത് പൊതുസമൂഹം കാണുന്നുണ്ടെന്നും ഇതിന് വിരുദ്ധമായ നിലപാടുകൾ ചുരുക്കം ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സിക്ക് ജയം ഗോവയിൽ ചെന്നൈയിൻ എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത്

ജയത്തോടെ ഹൈദരാബാദ് ലീഗിൽ ആറാംസ്ഥാനത്തെത്തി

സി മുംബൈ സിറ്റിയെ നേരിടും

സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ ക്ഷീരമേഖലയിലെ കർഷകരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ദേദ സഹകരണ സംഘങ്ങൾ കാർഷിക മേഖലയിൽ നിന്ന് അകലുന്നത് ഭക്ഷ്യക്ഷാമത്തിന് ഇടവരുത്തുമെന്ന് മന്ത്രി പി

ആലപ്പുഴ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഗ്രാമീണ വ്യാപാര സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭക്ഷ്യ സുരക്ഷ ശക്തമാക്കുവാൻ ഗ്രാമീണ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിപണനവും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ദേദ കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് പുതിയ ഭരണ സമിതികൾക്ക് നിർവ്വഹിക്കാനുളളതെന്ന് മന്ത്രി എ

തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും മേഖലാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുജനങ്ങൾക്ക് സഹായകരമായ പദ്ധതികൾ ആവിഷ്ക്കരിക്കുന്നതോടൊപ്പം അതിനായി ജില്ലയുടെ ഭൌതിക സാഹചര്യങ്ങളുടെ വികസനവും ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു ദ്ദേ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മാർക്ക്ദാന സംഭവത്തിൽ സിൻഡിക്കേറ്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് കത്ത് നൽകി

ഇതിനെതിരെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ബിരുദങ്ങൾ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനം കോടതി റദ്ദാക്കുകയും ചെയ്തു

ആലപ്പുഴ കണ്ണൂർ ആലപ്പുഴ പ്രതിദിന പ്രത്യേക ട്രെയിൻ ഞായറാഴ്ച സർവീസ് ആരംഭിക്കും

ദ്ദേ തിരുനെൽവേലി പാലക്കാട് തിരുനെൽവേലി പ്രത്യേക ട്രെയിനിന് പുനലൂരും കൊട്ടാരക്കരയും സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവെ അറിയിച്ചു ദേദ വിമാന അപകടത്തെ തുടർന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി അന്തിമ സുരക്ഷാ വിലയിരുത്തൽ യോഗം ഇന്ന് ചേരും ഉയർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വിമാനക്കമ്പനി മേധാവികളുടെയും സാന്നിധ്യത്തിൽ വൈകീട്ട് മൂന്നിനാണ് യോഗം

ദേദ സംസ്ഥാനത്തെ സിനിമാതിയറ്ററുകളിൽ പ്രദർശനം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തിയറ്റർ സംഘടനകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും

അവ്യക്തതയും ഗവൺമെന്റ് ധനസഹായം പ്രഖ്യാപിക്കാത്തതുമാണ് തിയേറ്ററുകൾ തുറക്കുന്നത് വൈകാൻ കാരണം ദേദ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകൾ ഒരാഴ്ചയ്ക്ക് ശേഷമേ തുറക്കൂവെന്ന് ചെയർമാൻ ഷാജി എൻ കരുൺ അറിയിച്ചു